പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും

ദേശീയയുവജന പാർലമെന്റ്മേള നാളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

ഇതരസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

വാക്സിൻ വിതരണത്തിന്റെ തയാറെടുപ്പുകൾ ഇന്നലെ പ്രധാനമന്ത്രി ഉന്നതതലയോഗത്തിൽ വിലയിരുത്തിയി രുന്നു

കോവിഡ് ഡാറ്റാ മാനേജ്മെന്റ് സമിതി തലവനും വാക്സിൻ വിതരണസമിതി അംഗവുമായ രാം സേവക് ശർമയുടെ അധ്യക്ഷതയിലായിരുന്നു യ്യോഗം വിശദവിവരങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി വോയിസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ക്ഷ്യന്ദ്ഭ്രണ പ്രദേശങ്ങളിലെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എൻ എച്ച് എം ഡയറക്ടർമാർ സംസ്ഥാന ആരോഗ്യ്ഷ്കുപ്പിലെയും ആരോഗ്യമന്ത്രാലയ ത്തിലെയും മുതിർന്ന ആദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തീൽ കോ വിൻ സോഫ്റ്റ് വെയറിനെക്കു റിച്ചുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അഭിപ്രായങ്ങൾ യോഗം ചർച്ച ചെയ്തു കോ വിൻ സോഫ്റ്റ്വെയറിനെക്കുറിച്ചും വാകക്സിനേഷനെ സഹായിക്കാൻ രൂപം നൽകിയ സാങ്കേതികവിദ്യയെ കുറിച്ചും ശ്രീ ആർ

ശർമ്മ ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകി പൌരകേന്ദ്രീ കൃതമായ വാക്സിൻ വിതരണമാണ് നടത്തുന്ന തെന്നും അദ്ദേഹം പറഞ്ഞു എവിടെയും എപ്പോഴും വാക്സിൻ ലഭ്യമാക്കും

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമിക്കുന്ന കോവിഷീൽഡ് ഭാരത് ബയോടെക്കിന്റെ കോവാക് സിൻ എന്നീ വാക്സിനുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണിപ്പോരാളികളും ഉൾപ്പെടുന്ന മൂന്നൂകോടിയാളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക് സിൻ നൽകുക

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്ഡോൺ കാലത്തു മൂന്ന് മാസത്തിനിടെയാണ് രാജ്യത്തിന് ഈ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന സൂറത്ത് ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ എക് സ്പോയുടെ ഉദഘാടന ചടങ്ങിൽ പ്രസ്സാരിക്കവേ ആണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് പശ്ചിമ ബംഗാളിൽ ഗുജറാത്ത് പോലുള്ള വ്യാവസ്തിയിക വൈവിധ്യം ആവശ്യമാ ണെന്നും വസ്ത്രനിർമാണ് ്വൃഷ്മായത്തെക്കുറിച്ചുള്ള അറിവ് പശ്ചിമ ബംഗാളുമായി പ്രകിടാൻ ഗുജറാത്ത് എപ്പോഴും തയ്യാറാണെന്നും അവൂർ പ്റഞ്ഞു

രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യുവതീ യുവാക്കൾ യൂത്ത് പാർല മെന്റിൽ പങ്കാളികളാകും

തുടർന്ന് നടക്കുന്ന നാഷണൽ യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ സംസ്ഥാനതല മത്സരങ്ങളിലെ ഒന്നാം സ്ഥാനക്കാർ പങ്കെടുക്കും

ആ ന്യൂസ ഡസ്ക് ആകാശവാണി

കോവിഡ് മൂലം സ്കൂൾ കുട്ടികൾക്ക് നേരിടേണ്ടിവരുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് മാർഗനിർദേശ ങ്ങൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്ക് തടയുന്നതിനും പ്രൈമറി ക്ലാസുകളിൽ കുട്ടികളെ എത്തിക്കുന്നതിനും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൃതൃമായ പദ്ധതി ആവിഷ്കരിക്കണം

നാഗ്പൂർ ജബൽപൂർ ദേശീയപാതയിൽ പെഞ്ച് ദേശീയോദ്യാനത്തിൽ കൂടി കടന്നുപോകുന്ന ഗാഡ്ചിരോലി ചന്ദ്രപൂർ ചിമുർ വഡോദര എന്നിവയുൾപ്പെടെയുള്ള ഹൈവേകളിലും അണ്ടർപാസുകളുടെ നിർമാണവും ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം അറിയിച്ചു

ബംഗാളിലെ മൂന്ന് ദിവസത്തെ സ്ന്ദ്രർശ്നത്തിനിടെ അദ്ദേഹം വിനോദ സഞ്ചാരം തേയിലവ്യ്ക്സ്ായം എന്നിവയുമായി ബന്ധപ്പെട്ടവരു മായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തേയിലത്തൊഴിലാളികളുടെ അവസ്ഥയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം ടിഎംസി നേതാക്കൾ മന്ത്രിയുടെ ആരോപണം തള്ളിക്കളഞ്ഞു

കോവിഡ്ന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഓൺലൈൻ ക്സാസിൽ പങ്കെടുക്കുന്നതിനാണിത്

ജനുവരി മുതൽ ഏപ്രിൽ വരെയായിരിക്കും കാലാവധി

ബാംഗ്ലൂരു ആസ്ഥാനമായ കോൾ സെന്റർ വഴിഉയർന്ന പലിശയ്ക്ക് വായ്ക്പ നൽകുകയായിരുന്നു ഇവർ

ഉത്തരാഖണ്ഢ് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുക